സന്ദർശനത്തിൽ ഇന്ന് അഹമ്മദാബാദിൽ എത്തും ഉയരം കൂട്ടിയ സർദാർ സരോവർ അണക്കെട്ടിലെ ജലസംഭരണ ചടങ്ങിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹ്ഹിക്കും

കൊച്ചി മരട് ഫ്ളാറ്റ് വിഷയത്തിൽ ഇന്ന് സർവകക്ഷിയോഗം

ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി

ഗവർണർ ആചാര്യ ദേവ് വ്രത് മുഖ്യമന്ത്രി വിജയ് റൂപാനി മറ്റ് മന്ത്രിമാർ എന്നിവർ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി

നരേന്ദ്രമോദി ഗാന്ധിനഗറിലുള്ള മാതാവ് ഹിരാബെന്നിനെ കണ്ട് അനുഗ്രഹം നേടും

അണക്കെട്ടിന്റെ ഉയരം കൂട്ടിയതിനു ശേഷമുള്ളു ്ചരിത്രപരമായ ജലം സംഭരിക്കൽ ചടങ്ങായ നമാമി ദേവി നർമ്മ്ദ്രൂ മഹോത്സവിൽ പങ്കെടുത്ത് നർമ്മദാ നദിയിൽ പൂജ അർപ്പിക്കും തുടർന്ന് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും

പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരാണസിയും ഇതിൽ ഉൾപ്പെടും

മോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രദർശനം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ ബിജെപി ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും

നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ബിജെപി ഈ ആഴ്ച സേവ സപ്താഹായി ആചരിക്കുകയാണ്

പ്രസംഗത്തിൽ ജനങ്ങൾ മുന്നോട്ടുവെയ്ക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം ടിറ്ററിൽ അറിയിച്ചു ഹൌഡി മോദി പരിപാടിയെ ഏറെ ഉത്സാഹത്തോടെയാണ് കാണുന്നത് നമോ ആപ്പിലൂടെയും ജനങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന പരിപാടിയിൽ യുഎസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു

ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞ വിഭാഗമുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ

ഇന്ത്യയിൽ നിർമ്മാണ മേഖലുകൾ സ്ഥാപിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാകാൻ സ്ലോവേനിയിൻ വ്യാപാര സമൂഹത്തോട് രാഷ്ട്രപതി ആഹാനം ചെയ്തു

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിൽ എത്തുന്ന സംഘം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും സംഘത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലാവാസ സുഷീൽ ചന്ദ്ര തുടങ്ങിയവർ വിവിധ രാഷ്ട്രീയ കക്ഷിനേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി രണ്ട് ദിവസം ചർച്ച നടത്തും

ബി

ഉപഭോക്തൃ സൌഹൃദ നടപടിയുടെ ഭാഗമായി സ്കൂൾ ഫീസ് ഇൻഷുറൻസ് പ്രീമിയം മുനിസിപ്പൽ നികുതികൾ തുടങ്ങിയവ അടയ്ക്കാനുള്ള സൌകര്യം ഇനി മുതൽ ബി

നിലവിൽ ഡി

എച്ച് വൈദ്യൂതി പാചകവാതകം ടെലികോം വെള്ളം തുടങ്ങിയ അഞ്ച് വിഭാഗങ്ങളിലെ ബില്ലുകളാണ് ഈ സംവിധാനത്തിലൂടെ അടയ്ക്കാൻ സാധിക്കുന്നത് നാഷണൽ പെയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ബി

ഓൺലൈൻ വഴി ഒന്നിലധികം ഇടപാട് നടത്താനും ഉടനടി സ്ഥിരീകരണം ലഭിക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബി

ശാരദ ചിട്ടി ഫണ്ട് കേസിൽ ചോദ്യം പ്രച്ചെയ്യുലിനായി രജിബ് കുമാർ ഹാജരാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സീീബി ഐ ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയ്ക്കും ആഭ്യന്തര സ്പ്രക്ട്ടറിക്കും കത്ത് കൈമാറി

നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ വ്യക്തമാക്കി

പീഡനത്തിനിരയായ കുട്ടി ഡി ജി പി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവരെ സന്ദർശിക്കുമെന്ന് കമ്മീഷൻ അദ്ധ്യക്ഷ രേഖാശർമ്മ ടിറ്ററിൽ അറിയിച്ചു കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായവും കമ്മീഷൻ നൽകുമെന്നും അവർ പറഞ്ഞു അതേസമയം കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് നാല് ആഴ്ചയ്ക്കകം വിശദമായ ്റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു ചീഫ് സെക്രട്ടറി ഡി ജി

പെൺകുട്ടിക്ക് ആവശ്യമായ കൌൺസിലിങ്ങും ചികിത്സാ സഹായവും മറ്റും നൽകാനും ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി

മഴയും വെളളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ കൂടുതൽ ദുഷ്ട്ക്കരമായി

ദേശീയ ദുരന്ത പ്രതിക്ർണ സേനയുടെയും സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെയും രക്ഷാപ്പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുന്നു

സംഘടന ഇന്നലെ അമേരിക്കയിലെ സീറ്റലിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് ഇക്കാര്യം അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കുന്ന് ശ്രീ

പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ വാർത്താസമ്മേളനത്തിലാണ് ആഭ്യന്തരമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇക്കാര്യം വ്യക്തമാക്കിയത്

ഗസ്റ്ഹൌസിൽ മന്ത്രി ജി സുധാകരന്റെ സാന്നിധ്യത്തിൽ ജില്ലയിലെ പ്രളയക്കെടുതി സംബന്ധിച്ച് കളക്ടർ ചെറു വിവരണം അവതരിപ്പിക്കും

ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം അതിനിടെ കൊച്ചി മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് ഫ്ളാറ്റ് ഒഴിയാനുള്ള സമയപരിധി അവസാനിച്ചതോടെ നഗരസഭ ഫ്ളാറ്റുകളിൽ നോട്ടീസ് പതിച്ചു താൽക്കാലിക പുനരധിവാസം വേണ്ടവർ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് നഗരസഭയുമായി ബന്ധപ്പെടണമെന്ന് നോട്ടീസിൽ പറയുന്നു നോട്ടീസ് നൽകാനെത്തിയ മരട് നഗരസഭാ സെക്രട്ടറിയെ ഫ്ളാറ്റ് നിവാസികൾ തടഞ്ഞത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി തങ്ങൾ ഫ്ളാറ്റുകളിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിയില്ലെന്ന് ഫ്ളാറ്റുടമകൾ പറഞ്ഞു

എട്ട് ടീമുകൾ മത്സരിച്ചതിൽ ഫൈനലിസ്റ്റുകൾ ് മാത്രമാണ് യോഗ്യത നേടിയത്

മൂന്നുമാസ്മാർച്ചികിത്സയിലായിരുന്നു

സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് ആലുവ പടിഞ്ഞാറെ കടങ്ങല്ലൂർ ജുമാ മസ്ജിദിൽ നടക്കും